സംസ്ഥാനത്തെ പ്രേതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം ഒമ്പതിനായിരം പിന്നിട്ടു

സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ നാല് ജില്ലകളിൽ നാളെ മുതൽ നിരോധനാജ്ഞ ഐ

എല്ലിൽ ടോസ് നേടിയ സൺറൈസസ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു വൈഭവ് ഉച്ചകോടി വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധർ പങ്കെടുക്കുന്ന വൈഭവ് ആഗോള വെർചൽ ഉച്ചകോടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വീഡിയോ കോൺഫറൻസിലൂടെ നിർവ്വഹിച്ചു ശാസ്ത്ര ഗവേഷണ രംഗങ്ങളെ ഉത്തേജിപ്പിക്കാൻ കേന്ദ്രസർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു ശാസ്ത്രമാണ് സാമൂഹിക സാമ്പത്തിക പരിവർത്തനങ്ങളുടെ അടിസ്ഥാനമെന്നും അദ്ദേഹം വൃക്തമാക്കി യുവജനങ്ങളെ ശാസ്ത്രത്തിലേയ്ക്ക് ആകർഷിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

സംസ്ഥാനത്തെ ആദ്യ ഓപ്പൺ സർവകലാശാലയാണിത് അഗ്രഹിക്കുന്ന ആർക്കും അറിവ് എളുപ്പത്തിൽ കരഗതമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ശ്രീനാ്രായണഗുരു ഓപ്പൺ സർവ്വകലാശാലയിലൂടെ അതാണ് യാഥാർത്ഥ്യമാകുന്നതെന്നും മുഖ്യമന്ത്രി പിണറായിവിജയൻ പറഞ്ഞു വിദ്യകൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ബോധിപ്പിച്ച ഗുരുശ്രേഷ്ഠന്റെ പേരിൽ തന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിക്കാനായത് ആഹ്താദകരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കോഴികോട് തിരുവനന്തപുരം എറണാകുളം മലപ്പുറം എന്നീ നാല് ജില്ലകളിൽ ആയിരത്തിലധികം രോഗബാധിതരാണ് ഇന്ന് ഉള്ളത്

അഞ്ച് പേരിൽ കൂടുതൽ കൂട്ടം കൂടുന്നത് ഈ ജില്ലകളിൽ നിരോധിച്ചിട്ടുണ്ട്

പിഎസ്

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പരീക്ഷാ നടത്തിപ്പ് പരീക്ഷാർത്ഥികൾക്കും ജീവനക്കാർക്കും അവരുടെ അഡ്മിറ്റ് കാർഡ് തിരിച്ചറിയൽ കാർഡ് എന്നിവ ഉപയോഗിച്ച് പരീക്ഷാ കേന്ദ്രത്തിലേയ്ക്ക് തടസ്സമില്ലാതെ യാത്ര ചെയ്യാം

ആർ ടി സി കൊച്ചി മെട്രോ തുടങ്ങിയ പൊതു ഗതാഗത സംവിധാനങ്ങൾ ഇതിനായി സർവ്വീസ് നടത്തും

പാലം പ്പുന്റർനിർമ്മാണത്തിന്റെ ചെലവ് കോടതി നടപടികൾക്ക് അനുസ്പ്തമായി മുൻ കരാറുകാരിൽ നിന്നും ഈടാക്കുമെന്നും അദ്ദേഹം വൃക്തമാക്കി

രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമുൾപ്പെടെ പ്രമുഖർ ഇന്ന് ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി

തിരുവനന്തപുരം ഗാന്ധിപാർക്കിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹാരാർപ്പണവും പുഷ്പാഞ്ജലിയും നടത്തി

അമ്പതോളം സഭകളുടെട്ട അധ്യക്ഷന്മാരും വിശ്വാസികളും ദിനാചരണത്തിൽ പങ്കെടുത്തു

ഉദ്യോഗാർഥി കോവിഡ് ബാധിതനാണെങ്കിൽ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് അപേക്ഷ നൽകുകയും രോഗം ഭേദമായ ശേഷം നിരീക്ഷണ് കാലയളവും പൂർത്തിയാക്കിയ ശേഷം ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്താൽ മതിയാകും ഹോട്സ്പോട്ട്കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ ഉൾപ്പെട്ടവർ സംസ്ഥാനങ്ങളിലോ വിദേശത്തോ അകപ്പെട്ടു പോയവർ എന്നിവർക്കും അപേക്ഷ നൽകിയാൽ ഇളവ് അനുവദിക്കും

ആശുപത്രിയിലെ കോവിഡ് നോഡൽ ഓഫീസർ ഡോ അരുണ രണ്ട് ഹെഡ് നഴ്സുമാർ എന്നിവർക്കെതിരെയാണ് നടപടി

ഫിയോക് സമഗ്ര പാക്കേജ് പ്രഖ്യാപിക്കാതെ സംസ്ഥാനത്തെ സിനിമാ തീയേറ്ററുകൾ തുറക്കില്ലെന്ന് തീയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് വിനോദ കെട്ടിട നികുതികൾ ഒഴിവാക്കണമെന്നും സംഘടന കൊച്ചിയിൽ ആവശ്യപ്പെട്ടു ശബരിമല ഡോക്ടർ കോവിഡ് സാഹചര്യം പരിഗണിച്ച് ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും ഇക്കുറി ശബരിമല മണ്ഡല മകരവിളക്ക് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സർക്കാർ ഡോക്ടർമാരുടെ സംഘടന

എല്ലിൽ ടോസ് നേട്ടിയ് സൺറൈസസ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിംഗ്സിന്റിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു